സ്വീകരിച്ചതായി മന്ത്രി കെ

കൊറോണ വൈറസിനെതിരെ സംസ്ഥാനത്ത് എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചതായി മന്ത്രി കെ

മുംബൈയിൽ രണ്ടും ഹൈദരാബാദ് ബംഗളുരു എന്നി വിടങ്ങളിൽ ഒന്നും പേരാണ് നിരീക്ഷണത്തിൽ

ഇവരെല്ലാം ചൈനയിൽ പോയി വന്നവരാ ണ്

പനി ചുമ ശ്വാസതടസ്സം എന്നിവ അനുഭവപ്പെട്ടാൽ ഉടൻ ഡോക്ടറെ ബന്ധപ്പെടണ മെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി കൊറോണ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ വിദേശരാ ജ്യങ്ങളിലെ മലയാളി നഴ്സുമാരുടെ സുരക്ഷ ഉറപ്പുവരുത്താനും വൈറസ് ബാധിച്ചതായി സംശയിക്കുന്ന സൌദിയിലെ മലയാളി നഴ്സിന് വിദഗ്ദ്ധ ചികിത്സ ലഭ്യമാക്കാനും നടപടിയുണ്ടാകണമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർധൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ എന്നിവർക്കയച്ച കത്തിൽ മന്ത്രി ടി

രാമകൃഷ്ണൻ ആവശ്യപ്പെട്ടു സൌദി ആരോഗ്യമന്ത്രാലയവുമായി ബന്ധ പ്പെട്ട് നഴ്സുമാരുടെ ആശങ്കകൾ പരിഹരിക്കുവാനും മികച്ച് ചികിത്സയും പ്രതിരോധ സംവിധാനങ്ങളും ഉറപ്പുവരുത്താനും

് കൊറോണ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ അയൽരാജ്യങ്ങളിൽ നിന്നും നാട്ടിലെത്തുന്നവരെ നിരീക്ഷിക്കാൻ തൃശൂർ ജില്ലാ ആശുപത്രിയിലും മെഡിക്കൽ കോളജിലും ഐസലേഷൻ വാർഡ് സജ്ജീകരിച്ചതായി ആരോഗ്യ വകുപ്പ് അറിയിച്ചു നിലവിൽ ചൈനയിൽ നിന്നും നാട്ടിലെത്തിയ അരണാട്ടുകര സ്വദേശിനിയായ എം ബി ബി എസ് വിദ്യാർത്ഥിനി മാത്രമാണ് ജില്ലയിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്

നിന്ന് കോട്ടയത്ത് മടങ്ങിയെത്തിയ മൂന്നുപേർ നിരീക്ഷണത്തിലാണെന്ന് ആരോഗ്യ വകുപ്പ് അറിയിച്ചു നിലവിൽ ഇവർക്കാർക്കും വൈറസ് ബാധയുടെ ലക്ഷണങ്ങളില്ലെന്ന് ഡി എം ഒ പറഞ്ഞു

വൈകിട്ട് ഏഴിന് രാഷ്ട്രപതി ഹിന്ദിയിൽ നടത്തുന്ന പ്രസംഗം ആകാശവാണി പ്രക്ഷേപണം ചെയ്യും ദൂരദർശന്റെ എല്ലാ ചാനലുകളും പ്രസംഗം സംപ്രേക്ഷണം ചെയ്യുന്നുണ്ട്

ഇത് പൂർത്തിയായാൽ ഉടൻ ദൂരദർശൻ പ്രാദേശിക ഭാഷകളിൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്റെ പരിഭാഷ സംപ്രേഷണം ചെയ്യും

ശക്തമായ ജനാധിപത്യത്തിന് തെരഞ്ഞെടുപ്പ് സാക്ഷരത എന്നതാണ് ഇത്തവണത്തെ പ്രമേയം

ന്യൂഡൽഹിയിൽ തെര ഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് മുഖ്യാതിഥിയായി പങ്കെടുക്കും തെരഞ്ഞെടുപ്പ് രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാന ജില്ലാതല ഓഫീസർമാർക്ക് ദേശീയ അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്യും

ജനാധിപത്യ ആശയം വ്യാപി പ്പിക്കുന്നതിനും സമ്മതിദാന അവകാശത്തിന്റെ വിനിയോഗം പ്രോത്സാഹി പ്പിക്കുന്നതിനും ഗവൺമെന്റ് ഓഫീസുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങ ളിലും പ്രതിജ്ഞാ ചടങ്ങ് സംഘടിപ്പിക്കും സംസ്ഥാനത്തെ സ്കൂളുകളിൽ മതപഠനം നിരോധിച്ച് ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നും ലംഘിക്കുന്ന സ്കൂളുകൾ അടച്ചുപൂട്ടാൻ നടപടി സ്വീകരിക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു ഏതെങ്കിലും പ്രത്യേക മതവിഭാഗത്തിന്റെ ക്ലാസുകൾ സ്കൂളുകിൽ നടത്താനാകില്ലെന്ന് വൃക്തമാക്കിയാണ് കോടതി നടപടി പ്രത്യേക മതവിഭാഗത്തിന്റെ ക്ലാസുകൾ നടത്തുന്നതായി കണ്ടെത്തി സ്കൂൾ അടച്ചുപൂട്ടിയതിന് എതിരെ തിരുവനന്തപുരം മണക്കാട് ഹിദായ എജ്യുക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകിയ ഹരജി ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് തള്ളി ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതര മൂല്യങ്ങളുടെ ലംഘന മാണ് ഇത്തരം മതപഠന ക്സാസുകളെന്നും കോടതി നിരീക്ഷിച്ചു

ടുത്തി കെ പി സി സി പുനഃസംഘടിപ്പിച്ചു

പിമാരായ കൊടിക്കുന്നിൽ സുരേഷും കെ സുധാകരനും വർക്കിംഗ് പ്രസിഡന്റുമാരായി തുടരും

കൊച്ചുമുഹമ്മദാണ് പുതിയ ട്രഷറർ

വേണുഗോപാൽ ന്യൂഡൽഹി യിൽ അറിയിച്ചു ് നേപ്പാളിൽ വിനോദയാത്രക്കിടെ മരിച്ച കോഴിക്കോട് കുന്ദമംഗലം സ്വദേശികളായ രഞ്ജിത്തിനും ഭാരൃ ഇന്ദുലക്ഷ്മിക്കും മകൻ വൈഷ്ണവിനും കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി മൂവരുടേയും മൃതദേഹങ്ങൾ ഇന്നലെ രാത്രി കുന്ദമംഗലത്തെ പുനത്തിൽ തറവാട് വീടിന് സമീപം സംസ്കരിച്ചു സമൂഹത്തിന്റെ നാനാതുറയിൽപ്പെട്ട നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി

ന്യൂസിലാന്റിനെതിരായ ആദ്യ ട്വന്റി ട്വന്റിയിൽ ഇന്ത്യയ്ക്ക് ആറു വിക്കറ്റ് ജയം

ഇരു ട്രീമുകളിലുമായി അഞ്ചു താര ങ്ങൾ അർധസെഞ്ചുറി നേടി രണ്ടാം മത്സരം നാളെ നടക്കും

ജയത്തോടെ ഗ്രൂപ്പ് ജേതാക്കളായി കാർട്ടറിൽ കടന്നു ഇന്ത്യ ചൊവ്വാഴ്ച ഓസ്ട്രേലിയയുമായി ഏറ്റുമുട്ടും

ഐഎസ്എൽ ഫുട് ബോളിൽ ഹൈദരാബാദിൽ നടന്ന ഹൈദരാബാദ് മുംബൈ മത്സരം ഓരോ ഗോളടിച്ച് സമനിലയിൽ പിരിഞ്ഞു ഇന്ന് മഡ്ഗാവിൽ കേരളാ ബ്ലാസ്റ്റേഴ്സ് ഗോവയുമായി ഏറ്റുമുട്ടും

ലഭിച്ചതായി മന്ത്രി എ സി മൊയ്തീൻ പറഞ്ഞു അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോഴിക്കോട് മെഡിക്കൽ കോളെജിൽ സ്ഥാപിക്കുന്ന സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ നിർമാണോദ്ഘാടനം നിർവഹിക്കുക യായിരുന്നു മന്ത്രി എട്ട് മാസം കൊണ്ട് പ്രവൃത്തി പൂർത്തീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു

മോട്ടോർ വാഹന വകുപ്പിന് കീഴിൽ സംസ്ഥാനത്ത് അന്താരാഷ്ട്ര ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് ട്രാക്ക് കം ഡ്രൈവർ കോച്ചിംഗ് സെന്റർ ഉടൻ ആരം ഭിക്കുമെന്ന് മന്ത്രി എ

കേരളത്തിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ് ഉള്ള രാജ്യങ്ങളിലേക്ക് ഡ്രൈവിംഗ് ജോലി തേടി പോകുന്നവർക്ക് അവിടുത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസാകുന്നതിന് വളരെ പ്രയാസമനുഭവിക്കുന്നുണ്ടെന്നും പുതിയ ഇന്റർനാ ഷണൽ ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് സെന്റർ പ്രാവർത്തികമാകുന്നതോടെ ഇതിന് പരിഹാരമാകുമെന്നും മന്ത്രി അറിയിച്ചു

പൊതുവിതരണ മേഖലയിലെ അഴിമൃതി തടയുന്നതിനും സുതാര്യമായ സേവനം ഉറപ്പ് വരുത്തുന്നതിനും നട്പടി സ്വീകരിക്കുമെന്ന് മന്ത്രി പി

വയനാട് പൂതാടി പഞ്ചായത്തിലെ വാകേരിയിൽ സപ്ലൈകോ മാവേലി സൂപ്പർ സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവ്വഹിക്കുക യായിരുന്നു അദ്ദേഹം കൃത്യമായ റേഷൻ വിഹിതം ഉറപ്പാക്കുന്നതിനായി റേഷൻ കടകളിലെ ഇ പോസ് മെഷീനുകൾ ത്രാസുമായി ബന്ധിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു

സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയായ ലൈഫ് മിഷൻ വയനാടിന്റെ ചരിത്രം മാറ്റിയെഴുതിയെന്ന് മന്ത്രി പി

ലൈഫ് മിഷൻ വയനാട് ജില്ലാതല പൂർത്തീകരണ പ്രഖ്യാപനവും കുടുംബ സംഗമവും കൽപ്പറ്റ ചന്ദ്രഗിരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തി ദുരന്തനിവാരണ സേന രൂപീകരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി എ സി മൊയ്തീൻ പറഞ്ഞു കോഴിക്കോട് തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനവും ഐ എസ് ഒ പ്രഖ്യാപനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഗ്രാമപഞ്ചായത്ത് രേഖകൾ ഡിജിറ്റലൈസ് ചെയ്യാൻ നടപടി പുരോഗമിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു

അർഹരായ എല്ലാവർക്കും പട്ടയം ലഭ്യമാക്കുമെന്നും ഇതിനായി പട്ടയമേളകൾ തുടരുമെന്നും മന്ത്രി ഇ

ഇതിനായി സ്ഥലം വിട്ടുനൽകുന്ന സെന്റ് ജോൺസ് പള്ളി അധികൃതരുമായി ധാരണാപത്രത്തിൽ ഒരാഴ്ചയ്ക്കകം ഒപ്പുവയ്ക്കുമെന്നും മന്ത്രി കണ്ണൂരിൽ അറിയിച്ചു

ചടങ്ങിൽ സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക കൌൺസിൽ യുവശാസ്ത്ര പുരസ്കാരം മുഖ്യമന്ത്രി സമ്മാനിക്കും സ്റ്റാർട്ടപ്പ് മിഷനും ഐ ടി വകുപ്പും പാലക്കാട് ഗവ പോളിടെക്നിക് കോളെജിൽ ഒരുക്കിയ സ്റ്റാർട്ടപ്പ് ഇൻകുബേറ്റർ സെന്ററും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും

കാലാവസ്ഥാ വൃതിയാന മണ്ണുസംരക്ഷണ പദ്ധതിയുടെ പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം ഇന്ന് രാവിലെ ചുള്ളിമടയിൽ മന്ത്രി കെ

ഒറ്റപ്പാലം സ്റ്റേഷനിൽ യാർഡ് നവീകരണം നടക്കുന്നതിനാൽ കോയമ്പത്തൂർ കണ്ണൂർ പാസഞ്ചർ ട്രെയിൻ മറ്റന്നാൾ കോയമ്പത്തൂരിനും ഷൊർണൂരിനുമിടയിൽ ഭാഗികമായി റദ്ദാക്കും ഇതേദിവസം കണ്ണൂർ കോയ മ്പത്തൂർ പാസഞ്ചർ ഷൊർണൂരിനും കോയമ്പത്തൂരിനുമിടയിലും ഭാഗിക മായി റദ്ദാക്കും

കോഴിക്കോട് കൂടത്തായ് കൊലപാതക പരമ്പരയിലെ ആൽഫൈൻ കേസിൽ ഇന്ന് കുറ്റപത്രം സമർപ്പിക്കും സിലിയുടെ മകൾ ആൽഫൈൻ മരിച്ച കേസിലാണ് അന്വേഷണ സംഘം താമരശ്ശേരി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുക